ഭീകരതയ്ക്കും വിഘടനവാദത്തിനും എതിരെ ഇന്തൃ ശക്തമായ നടപടി എടുത്തു കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ള അ അ ബാങ്കോക്കിൽ പതിനാറാമത് ആസിയാൻ ഇന്ത്യ ഉച്ചകോടി ഇന്ന് പ്രധാനമന്തി നരേന്ദ്രമോദി തായ്ലാന്റ് പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചകോടിയിൽ അധ്യക്ഷം വഹി ക്കും ഭീകരതയ്ക്കും വിഘടനവാദത്തിനും വിധംസക പ്രവർത്തകർക്കുമെതിരെ ഇന്ത്യ ശക്തമായ നടപടി എടുത്തു കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ബാങ്കോക്കിൽ വൃക്തമാക്കി

ശരിയായ തീരുമാനം എടുക്കു മ്പോൾ അതിന്റെ പ്രതിധനി ആഗോള തലത്തിൽ തന്നെ ഉണ്ടാകുമെന്നും തായ്ലാന്റിൽ അത് കേൾക്കാൻ സാധി ച്ചുവെന്നും പ്രധാനമന്ത്രി വിലയിരുത്തി രണ്ടാംവട്ടവും ഭരണത്തിലെത്തിയ ശേഷം ഗവൺമെന്റ് സ്വീകരിച്ച ക്ഷേമ നടപടികൾ ഇന്ത്യൻ സമ്പദ് വൃവസ്ഥ യെയും രാജ്യത്തിന്റെ വളർച്ച്യെയും ഏറെ മുന്നിലെ ത്തിച്ചു ആഗോളതലത്തിൽ പ്രധാന ശക്തിയായി ഇന്ത്യ വളരുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

മൂന്ന് ദിവസത്തെ തായ്ലാന്റ് സന്ദർശനത്തിന് ഇന്നലെയാണ് പ്രധാനമന്ത്രി ബാങ്കോക്കിൽ എത്തിയത് നാളെ ആർ സി ഇ പി കരാർ അന്തിമ ചർച്ചയിലും പൂർവേഷ്യ ഉച്ചകോ ടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും

പി കരാർ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കടുത്ത ആഘാതം സൃഷ്ടിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പറഞ്ഞു ന്യൂഡൽഹിയിൽ എ ഐ

സി ആസ്ഥാനത്ത് പാർട്ടി ഭാരവാഹികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക മാന്ദൃം പരിഹരിക്കുന്ന തിനു പകരം തലക്കെട്ടുകളും ചടങ്ങുകളും ഒരുക്കാനാണ് പ്രധാനമന്ത്രിക്ക് താൽപര്യമെന്ന് സോണിയാഗാന്ധി കുറ്റ പ്പെടുത്തി പ്രതിപക്ഷ നേതാക്കളെയും ഗവൺമെന്റുകളെയും പീഡിപ്പി ക്കാൻ കേന്ദ്രവും ബി

പിയും ഗവൺമെന്റ് ഏജൻസി കളെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് എ

സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആരോപി ച്ചു കർണാടകയിലെ കോൺഗ്രസ് ജെ ഡി എസ് വിമത എം എൽ എമാരുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി യദിയൂരപ്പയുടെതായി പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പ് ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാ ണെന്നും കെ സി വേണുഗോപാൽ ന്യൂഡൽഹിയിൽ പറ ഞ്ഞു മാർ ് മ മാവോയിസ്റ് അനുകൂല ലഘുലേഖ കൈവശം വെച്ച കേസിൽ റിമാൻഡിലായ കോഴിക്കോട് സ്വദേശികളായ വിദ്യാർഥികളുടെ ജാമ്യാപേക്ഷയിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ വാദം കേൾക്കും

സംഭവത്തിൽ ഡിജിപിയുടെ നിർദേശത്തെ തുടർന്ന് നോർത്ത് സോൺ ഐ ജി അശോക് യാദവ് പന്തീരങ്കാവ് സ്റ്റേഷനിലെത്തി കേസിന്റെ അനേഷണ പുരോഗതി വിലയിരുത്തി അതി നിടെ റിമാൻഡിലായ വിദ്യാർഥികളുടെ ബന്ധുക്കൾ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകി രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ശക്തികളുടെ കേന്ദ്ര മായി സിപിഐഎം മാറിയതിന്റെ തെളിവാണ് പാർട്ടി ബന്ധം പുലർത്തുന്ന രണ്ടുപേരെ യു

എ ചുമത്തി അറസ്റ്റ് ചെയ്ത് സംഭവമെന്ന് യുവമോർച്ചു സംസ്ഥാന പ്രസിഡന്റ് കെ പി പ്രകാശ്ബാബു പറഞ്ഞു

യുവിലടക്കം ഇത്തരം ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും നേതൃത്വം പാഠം പഠിച്ചില്ലെന്നും അദ്ദേഹം കോഴിക്കോട് കുറ്റപ്പെടുത്തി

എ വിഷയത്തിൽ സി

എമ്മിന് ഇരട്ടത്താപ്പാ ണെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് ടി സിദ്ധീഖ് ആരോപിച്ചു

എക്കെ തിരെ സംസാരിച്ച സിപിഐഎം നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് കേരളത്തിൽ യു

എ ചുമത്തുന്നത് വിരോധാഭാസമാണെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറ ഞ്ഞു സംസ്ഥാന നിയമപരിഷ്കരണ കമ്മീഷന്റെ ആറാമത് റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചു പൊതുമുതൽ നശി പ്പിക്കുന്നവരിൽ നിന്ന് അതിന്റെ വില ഇൌടാക്കാനും ബന്ധപ്പെട്ട കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകുമ്പോൾ നഷ്ടത്തിന്റെ മൂല്യം കോടതിയിൽ കെട്ടിവെയ്പ്പിക്കാനും വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് കൈമാറിയത് ലളിതവും ഗംഭീരവുമായ ഹരിതചട്ടം ഉറപ്പിച്ച ഉത്സവമായി സംസ്ഥാന സ്കൂൾ കലോത്സവം മാറണമെന്ന് മന്ത്രി സി

പണക്കൊഴുപ്പിന്റെ മേളയല്ല സംസ്ഥാന സ്കൂൾ കലോത്സവമെന്നും അദ്ദേഹം കാഞ്ഞങ്ങാട്ട് അവലോകന യോഗത്തിൽ പറഞ്ഞു കലോത്സവ ലോഗോ ചടങ്ങിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പ്രകാശനം ചെയ്തു

മന്ത്രി എ സി മൊയ്തീൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും

കണ്ണൂർ രണ്ടാമതും കോഴിക്കോട് മൂന്നാമ തുമെത്തി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ആദ്യ എവെ മത്സര ത്തിൽ ഹൈദരാബാദ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒന്നി നെതിരെ രണ്ട് ഗോളിന് തോൽപ്പിച്ചു ബ്ലാസ്റ്റേഴ്സിന്റെ സീസിണിലെ രണ്ടാം തോൽവിയാണിത് ഹൈദരാബാ ദിന്റെ ആദ്യ ജയവും

സിയെ നേരിടും

ആർഡി ടാറ്റാ സ്പോർട്സ് കോംപ്ലക്സിൽ വൈകീട്ട് എഴരക്കാണ് മത്സരം

മലയാളിതാരം സഞ്ജുസാംസൺ ഇന്ന് കളിക്കാനിറങ്ങുമെന്നാണ് സൂച ന ഗുണ്ടൂരിൽ ദേശീയ ജൂനിയർ മീറ്റിന്റെ ആദ്യദിനം ഒരു സ്വർണ്ണമടക്കം കേരളത്തിന് മൂന്ന് മെഡലുകൾ

എസ് പ്രഭാവതി നേടിയ വെള്ളിയാണ് കേരളത്തിന്റെ മറ്റൊരു മെഡൽ

കേരളം ആറാം സ്ഥാനത്താണ് സിബിഎസ്ഇ സംസ്ഥാനതല ഇന്റർ സ്കൂൾ കായിക മേള യിലെ ക്ലസ്റ്റർ പത്തിൽ തൃശൂർ പൂച്ചട്ടി ഭാരതീയ വിദ്യാഭ വൻ ജേതാക്കളായി

ക്ലസ്റ്റർ പതിനൊന്നിൽ എറണാ കുളം വാഴക്കുളം കാർമൽ പബ്ലിക്ക് സ്കൂളാണ് ജേതാ ക്കൾ എരൂർ ഭവൻസ് വിദ്യാമന്ദിർ രണ്ടാമതെത്തി വിശാലകൊച്ചി വികസന അതോറിറ്റിയെ അപകീർത്തിപ്പെടു ത്തുന്ന പ്രചാരണം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അവസാനിപ്പിക്കണമെന്ന് അതോറിറ്റി ചെയർമാൻ വി സലീം കൊച്ചിയിൽ ആവശ്യപ്പെട്ടു ഐഎസ്എൽ മത്സ രങ്ങൾക്ക് ജി സി ഡി എ എല്ലാ സഹകരണവും ബ്ലാസ്റ്റേ ഴ്സിന് നൽകുന്നുണ്ടെന്നും അപ്പാദ പ്രചാരണത്തിന് പിന്നിലെ താൽപര്യങ്ങൾ പരിശോധിക്കണമെന്നും സലീം പ്രസ്താവനയിൽ പറഞ്ഞു മാതൃഭാഷ സമ്പൂർണ്ണ ഭരണ ഭാഷയാകുന്ന കാലം വിദൂരമ ല്ലെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു കാഞ്ഞങ്ങാട്ട് ഭരണഭാഷാ വാരാചരണത്തിന്റെ കാസർകോട് ജില്ലാതല പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ൃ ഇടുക്കി മലങ്കര ടൂറിസ്റ്റ് ഹബ്ബ് മന്ത്രി കെ

മേഖലയിലെ പരിസ്ഥിതിയും ജൈവ വൈവിധ്യവും സംരക്ഷിച്ചാണ് ടൂറിസ്റ്റ് കേന്ദ്ര ത്തിന്റെ നിർമ്മാണം കുടിവെള്ള വിതരണത്തിനും ജല സേചനത്തിനും വേണ്ടി നിർമിച്ച അണക്കെട്ടാണെങ്കിലും അതിന് തടസ്സമില്ലാത്ത ടൂറിസം വികസനത്തിന് അനു മതി നൽകുകയായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു ഹബ്ബിലെ കുട്ടികളുടെ പാർക്ക് മന്ത്രി എം

ഡീൻകുര്യാക്കോസ് എം പി മുഖ്യാതിഥിയായി രുന്നു

മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു കയർ കോർപ്പറേഷന്റെ പെരുമണിലെ അഞ്ച് ഏക്കർ സ്ഥലത്തായിരിക്കും യൂനിറ്റ് കയർ വികസന വകുപ്പ് പ്രൊജക്ട് ഓഫീസ് സംഘടിപ്പിച്ച ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോഴിക്കോട് കൂടത്തായി കൊലപാതക പരമ്പരയിലെ ആൽഫൈൻ കേസിൽ മുഖ്യപ്രതി ജോളിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും ഇന്ന് അവധിയായതി നാൽ വൈകീട്ട് നാലിനകം ജോളിയെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ്രഹാജരാക്കും അതിനിടെ മഞ്ചാടിയിൽ മാത്യു മരണപ്പെട്ട കേസിലും ജോളിയുടെ അറസ്റ്റ് രേഖപ്പെടു ത്താൻ താമരശേരി മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ പൊലീസിന് അനുമതി നൽകി താനൂർ അഞ്ചുടിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഇസ്ഹാ ഖിന്റെ കൊലപാതകം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ക്രൈംബ്രാഞ്ച് ഡി

പി എൻ

മറവി രോഗ സൌഹൃദ സമൂഹത്തിനായി കൊച്ചി സർവകലാ ശാല ന്യൂറോ സയൻസ് ഡിപ്പാർട്മെന്റും ജില്ലാ ഭര ണകൂടവും ചേർന്ന് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര സമ്മേ ളനം ഉദ്ബോധ് ഹൈക്കോടതി ജഡ്ജി ദേവൻ രാമച ന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസത്തെ സമ്മേളനം നാളെ സമാപിക്കും

ഭൂമിയുണ്ടെങ്കിലും വീടില്ലാത്ത കുടുംബങ്ങൾക്ക് അതു ലഭൃമാക്കുന്ന രണ്ടാംഘട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇത്രയും വീടുകൾപൂർത്തീകരിച്ചത്

ഇതിന്റെ ഭാഗമായി രാത്രി ഒമ്പത് മുതൽ പുലർച്ചെ ആറു വരെ പാലത്തിലെ ഗതാഗതം പൂർണ്ണമായും നിർത്തിവെക്കും ഗതാഗതം ബദൽ പാത കളിലൂടെ തിരിച്ചുവിടാൻ കഴിഞ്ഞ ആഴ്ച ചേർന്ന യോഗ ത്തിൽ തീരുമാനം എടുത്തിരുന്നു മലനാട് റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പഴ യങ്ങാടി ബോട്ട് ടെർമിനൽ ഈ മാസം അവസാന ത്തോടെ ഉദ്ഘാടനം ചെയ്യാൻ നിരീക്ഷണ സമിതി യോഗം തീരുമാനിച്ചു

കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സംയുക്ത സംരംഭമാണിത് കൽപറ്റയിൽ ആരംഭിച്ച മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി ഹൈക്കോടതി ജഡ്ജി എ

ആവശ്യത്തിന് കോടതികൾ ഇല്ലാ ത്തത് നീതി ലഭിക്കാൻ കാലതാമസം ഉണ്ടാക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ജില്ലാ ആസ്ഥാനത്ത് മുൻസിഫ് മജി സ്ട്രേറ്റ് കോടതി ഇല്ലാത്ത ഏക ജില്ലയായിരുന്നു വയ നാട്